രാജ്യത്തെ അഭിസംബോധന ചെയ്യും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി വിശദീകരിക്കും

കോവിഡിനെതിരെ പോരാട്ടാൻ സർക്കാർ സംവിധാനങ്ങളോടൊപ്പം വൃക്തികളും പ്രാദ്ദേശിക്കു സമൂഹവും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു

വിശദാംശങ്ങളുമായി കൃഷ്ണ

അന്താരാഷ്ട്ര സർവ്വീസ് നടത്തുന്ന വിമാനങ്ങൾ ഇന്ത്യയിൽ ഇറങ്ങാൻ അനുവദിക്കില്ല

കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലേക്കുള്ള വ്യോമഗതാഗതം നിർത്തുന്നു ഇന്ത്യയിലേക്കുള്ള എല്ലാ അന്താരാഷ്ട്ര വിമാന സർവ്വീസുകളും കേന്ദ്ര സർക്കാർ വിലക്കി

രാജ്യത്തിന്റെ എല്ലാ അതിർത്തികളും അടച്ചിടാനും കേന്ദ്രസർക്കാർ തീരുമാനമെടുത്തു

തീവണ്ടികൾ സർപ്പീസ് നടത്തും

ഇത് സംബന്ധിച്ച് സംസ്ഥാനസർക്കാരുകൾ കർശന നടപടികൾ സ്വീകരിക്കണ്മെന്നും കേന്ദ്രം വൃക്തമാക്കി കൊറോണ വൈറസ് ബാധയുട്ടി പുതിയ വ്യാപനതലം ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്ന് ഇന്ത്യൻ വൈദ്യഗവേഷണ കേന്ദ്രം ഡയറക്ടർ ജനറൽ ഡോ

ഇത് സംബന്ധിച്ച് നടത്തിയ എല്ലാ പരീക്ഷണങ്ങളും നെഗറ്റീവാണെന്നും ആകാശവാണി വാർത്തകൾക്ക് അനുവദിച്ച അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു അനന്തര ഗവേഷണങ്ങൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു

ഉപയോഗിക്കുന്നവരും ജനങ്ങളോട് കൂടുതൽ ഇടപെടേണ്ടി വരുന്നതുമായ ജീവനക്കാരോടാണ് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ നിർദേശിച്ചിരിക്കുന്നത് ഗ്രൂപ്പ് ബി സി ജീവനക്കാരിൽ അമ്പതു ശതമാനം പേർ മാത്രം ഇനി ഓഫീസുകളിൽ ജോലിക്ക് ഹാജരായാൽ മതി

രോഗബാധ ആരംഭിച്ച ശേഷം ഇത് ആദ്യമായാണ് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കുന്നത്

എ ഇ യിലേയ്ക്കുള്ള ഡ്രൈവർമാർക്ക് തൊഴിൽ ്വിസ അടക്കമുള്ളവ നിറുത്തിവെയ്ക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു

പന്ത് ആശുപത്രിയിൽ നിന്നുള്ള ഡോ സഞ്ജയ് പാണ്ഡെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുൻ സെക്രട്ടറി ജനറൽ ഡോ

എം ഗോൾഡ് ചാനലിലും മറ്റ് ഫ്രീക്വൻസികളിലും പരിപാടി കേൾക്കാം

ദയാഹർജി തള്ളിയതിനെ ചോദ്യം ചെയ്ത് പ്രതികളിലൊരാൾ സമർപ്പിച്ചു ഹർജിയും സുപ്രീം കോടതി ഇന്ന് തള്ളിയതിനെ തുടർന്നാണ് നാളെ വധശിക്ഷ നടപ്പാക്കുന്നത്

ജമ്മുകശ്മീരിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണെന്നുളള കാര്യം മറ്റ് രാജ്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും രാജ്യസഭയിൽ രേഖാമൂലം മറുപടി പറയ്വേ അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അതിർത്തി കടന്നുളള ഭീകരവാദ ് പ്രവർത്തനങ്ങൾ രാജ്യത്തിന് ഭീഷണിയാണ്